ഒരു ദിവസം അത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്ര വിദേശകാരൃ മന്ത്രി എസ് ജയശങ്കർ

പി വി സിന്ധുവും സൈന നെഹ്വാളും ഇന്ന് ഇറങ്ങും

പാകിസ്ഥാൻ ഭീകര ആക്രിമുള്ളവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം പ്യക്തമാക്കി പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഒരു ദിവസം ഇന്ത്യയുടെ അധികാരം അവിട്ടെ പ്ലാബല്യത്തിൽ വരുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു പ്രധ്യാന്മന്ത്രി നരേന്ദ്രമോദിയുടെ ഹൂസ്റ്റണിലെ പരിപാടിയിൽ അമേരിക്കൻ പ്രപ്സിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കാളിത്തം ഇന്ത്യ അമേരിക്കൻ സമൂഹത്തിന്റെ വലിയ വിജയമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ സൊസൈറ്റിയുടെവാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നമ്മുടെ പ്രതിരോധ വൃവസായ മേഖല സ്വന്തം ശേഷിയ്ക്ക് ആനുപാതികമായ പ്രകടനമല്ല മുൻകാലങ്ങളിൽ നടത്തിയിട്ടുളളതെന്ന് നിരീക്ഷിച്ച കേന്ദ്രമന്ത്രി ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാഷ്ട്രത്തിന് ഇറക്കുമതി ചെയ്ത ആയുധങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നും ചുണ്ടിക്കാട്ടി

രാജ്നാഥ്സിംഗ് അറിയിച്ചു

കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ മാസം മൂന്നിനാണ് എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്

ബന്ദ ബല്ലിയ പ്രയാഗ്രാജ് ഫൈസാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഗംഗ യമുന ചമ്പൽ ബെത്വ എന്നീ നദികൾ നാശം വിതയ്ക്കുന്നു

ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ദുരന്തത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ജീ്മ്മോഹൻ റെഡി ഉത്തരവിട്ടു

ഇന്നലെ ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി ഇന്ന് തൃശൂർ വയനാട് ജില്ലകളിലാണ് കേന്ദ്രസംഘം സന്ദർശനം നടത്തുക തൃശൂർ ജില്ലയിൽ കേന്ദ്ര ജലവിഭവമന്ത്രാലയം എസ്

മോഹൻമുരളി ഗ്രാമവികസന മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറി എച്ച് ആർ മീണ ഗതാഗത മന്ത്രാലയം റീജ്യണൽ ഓഫീസർ വി വി ശാസ്ത്രി എന്നിവരുൾപ്പെട്ട സംഘം സന്ദർശനം നടത്തും വയനാട് ജില്ലയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വത്തിലുളള നാലംഗ സംഘമാണ് സന്ദർശനം നടത്തുന്നത്

വൈകീട്ടോടെ സംഘം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും

ഇ ഒ അമിതാഭ് കാന്ത് പറഞ്ഞു രാജ്യത്തിന്റെ അടിസ്ഥാന സമ്പദ്വ്യവസ്ഥ സ്ഥിരമാണെന്നും അദ്ദേഹം മുംബൈയിൽ നടന്ന ഒരു ചടങ്ങിൽ വ്യക്തമാക്കി ആഗോള മാന്ദ്യത്തിനിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാനിരക്ക് പഴയ സ്ഥിതിയിലേക്ക് മുന്നേറും

പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ്അമിതാഭ്കാന്ത് പറഞ്ഞു

ഇന്ത്യൻ എണ്ണക്കമ്പനികളുമായുള്ള സഹൃക്രണം് ചർച്ച ചെയ്യാനാണ് റഷ്യൻ മുൻ ഉപപ്രധാനമന്ത്രി ക്ടൂട്ടിയായ ഇഗർ സെഷിന്റെ സന്ദർശനം കിഴക്കൻ സാമ്പത്തിക ഫോറ്റത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തിയപ്പോൾ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് സന്ദർശനം് ജൈവ ഊർജ്ജ രംഗത്ത് ഇന്ത്യയും റഷ്യയും സംയുക്ത സഹകരണത്തിന് ധാരണയായിരുന്നു

ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ കൂടി അനുവാദത്തോടെയാകണം നടപടികൾ

ഇതോടെ ഇരുമ്പയിര് രംഗത്തെ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ

ഇമിഗ്രേഷൻ വിഭാഗമാണ് സേനയുടെ സഹായത്തോടെ ഇത്രയും പേരെ കസ്റ്റഡിയിലെടുത്തത്

ഇന്നലെ പ്യൂർട്ടോ പ്രിൻസെസ നഗരത്തിൽ അറസ്റ്റിലായവരെല്ലാം അനധികൃത താമസക്കാരാണെന്ന് ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ വിഭാഗം അറിയിച്ചു

രാത്രി ഏഴിനാണ് മത്സരം ഞായറാഴ്ച ധരംശാലയിൽ നടക്കേണ്ട ആദ്യ മത്സരം മഴയെത്തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു

മത്സരം റദ്ദാക്കിയതിനാൽ പാസെടുത്തവർക്ക് ടിക്കറ്റ് തുക മടക്കി നൽകുമെന്ന് ഹിമാചൽ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു ഇന്നത്തെ മത്സരം ആകാശവാണി തൽസമയം സംപ്രേഷണം നടത്തും

സിന്ധുവും സൈന നെഹ്വാളും ഇന്നിറങ്ങും ചൈനയിലെ ചാങ്ജോയിലാണ് മത്സരം

പുരുഷസിംഗിൾസിൽ സായ് പ്രണീത് തായ്ലന്റ് താരത്തോടും പി കശ്യപ് ഫ്രാൻസ് താരത്തോടും ഏറ്റുമുട്ടും ആരോഗ്യപ്രശ്നങ്ങളാൽ കെ